മേഖലയിൽ സുസ്ഥിരത വളർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കവിഞ്ഞു

ആന ചരിഞ്ഞ സംഭവത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി റിപ്പോർട്ട് തേടി

കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ

സംസ്ഥാനത്ത് ആറ് ജില്ലകളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധൃത മീൻപിടുത്തക്കാർ കടലിൽ പോകരുത്

ഇന്ത്യ ഓസ്ട്രേലിയ വിർച്ചൽ ഉച്ചുകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധം ഇരു രാജ്യങ്ങൾക്കുമുപരി ഇന്ത്യ പസഫിക് മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും വളർത്തും

ഇന്തോ പസഫിക് മേഖലയിൽ ഇന്ത്യയ്ക്ക് നിർണായക പങ്കു വഹിക്കാനാവുമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്മോറിസൺ പറഞ്ഞു

ഇവയിൽ ഏഴെണ്ണം കേരളത്തിലേയ്ക്കാണ്

സൌദി അറേബ്യയിൽ നിന്ന് മൂന്ന് വിമാനങ്ങളുണ്ട്

ഇനി എട്ടു വിമാനങ്ങൾ കൂടി എത്തിച്ചേര്യാനുണ്ട്

എത്ര വിമാനങ്ങൾക്ക് അനുമതി വേണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തോട് ചോദിച്ചിട്ടുണ്ട് വന്ദേഭാരത് ദൌത്യത്തിൽ വിമാനങ്ങൾ വരുന്നതിന് സംസ്ഥാനം യാതൊരു നിബന്ധനയും വച്ചിട്ടില്ല

പഴയ നിരക്ക് പ്രകാരമാണ് സർവ്വീസ് നടത്തുന്നത്

സെപ്റ്റംബർ മാസം വരെ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ തൈകൾ നടാനുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്

സ്ഫോടക വസ്തു നൽകി കൊലപ്പെടുത്തുന്നത് ഇന്ത്യൻ സ്സ്കാരത്തിന് ചേർന്നതല്ലെന്ന് കേന്ദ്രമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

ഉത്തർപ്രദേശ് ബീഹാർ ഝാർഖണ്ഡ് ഒഡീഷ പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലേയ്ക്കാണ് കൂടുതൽ സർവ്വീസ് നടത്തിയത്

ഈ കുടുംബിത്തിൽ നിന്ന് സാമ്പത്തിക ഇടപാടുണ്ടായിരുന്ന പ്രതി പെട്ടെ്ന്നുള്ള പ്രകോപനത്തിൽ വീട്ടമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തൂക്യായിരുന്നുവെന്ന് പൊലീസിനോട് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്

ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

ശശിധരന്റെ റിപ്പോർട്ട്

കൊല്ലൂറ്റ് ആ്ലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസ്ടര്ക്കോട് എന്നീ ജില്ലകളിലാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്

ഓഹരി രാജ്യത്തെ ഓഹരി വിപണിയിൽ ഇന്ന് നഷ്ടം